വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട്

നിർദ്ദേശങ്ങൾ കർശനമായി പാ്ലിക്കണമെന്ന് ഫിഷറീസ് മന്ത്രി

യു നടത്തുന്ന സമരം തുടരുന്നു

വിക്ഷേപണം ഇന്ന്

പ്രമേയത്തിന്മേൽ ചർച്ച തുടരുന്നു വോട്ടെടുപ്പ് തീയതിയിൽ തീരുമാനമായില്ല മഴ കേരളത്തിൽ അടുത്ത നാലു ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

തെക്കൻ ജില്ലകളിൽ മഴ കുറയും ഉയർന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ മുൻകരുതലെടുക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ ലഘൂകരണ അതോറിട്ടിയിലെ വിദഗ്ദ്ധൻ ഫഹദ് മഹ്റൂഖ് ആകാശവാണിയോട്

ഇടുക്കി ഇൻഡ്രോ ഇടുക്കി ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഐഡന്റിറ്റി പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കോളേജിലേക്ക് കാർഡ് പ്രവേശനം അനുവദിച്ചത് കോളേജിന് പൊലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

കോളേജിനെ സമാധാനപൂർണ്ണമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് തന്റെ ആദ്യ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രത്യേക യോഗവും ചേരുന്നുണ്ട്

സി മാർച്ച് പി എസ് സി നടത്തിയ പോലിസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സിവിൽസ്റ്റേഷനിലെ പി എസ് സി ഓഫിസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം

ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി

സെപ്തംബർ ഏഴിന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിക്ഷേപണം ക്രമീകരിച്ചിട്ടുള്ളത്

വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടത്താൻ സ്പീക്കറോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വതന്ത്ര എം

എ മാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്നു പരിഗണിച്ചില്ല

എൽ

ചർച്ചു അനാവശ്യമായി നീട്ടരുതെന്നാണ് ബി ജെ

ഭക്ഷ്യകമ്മീഷൻ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്നതിനും പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്നതിനുമായി കേരള സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ ഗോത്ര വർഗ്ഗ മേഖലകളിൽ സന്ദർശനം നടത്തും

തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കും

സി ഡാനിയേൽ അവാർഡ് നടി ഷീലയ്ക്ക് ചടങ്ങിൽ സമ്മാനിക്കും

ക്ഷേത്രം മേൽശാന്തി അനിമംഗലം രാമൻനമ്പൂതിരി പ്രായം കുറഞ്ഞ വാര്യത്ത് ജയരാജ് എന്ന ആനക്ക് ആദ്യ ഉരുള നൽകി